പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി

സംഭവങ്ങളെ ക്യോൺഗ്രസ് ഗവൺമെന്റ് നേരിട്ട രീതി ശരിയല്ലെന്ന് പ്രിധ്യാനമന്ത്രി നരേന്ദ്രമോദി

ധനസഹായം നൽകിയ കേസിൽ ചോദ്യാ ചെയ്യലിനായി ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് മിർവൈസ് ഉമർ ഫാറൂഖിനെ എൻ ഐ എ വിളിച്ചു വരുത്തും

ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മൽസരം ഇന്ന് ഉച്ചക്ക് മൊഹാലിയിൽ നടക്കും

സൈനികരുടെ ചിത്രറ്റു പോസ്റ്ററുകളിലോ പ്രചാരണ സാമഗ്രികളിലോ ഉപ്പയോഗിക്കരുത് ഇക്കാര്യം ചൂ ിക്കാട്ടി കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷൻമാർക്ക് കത്തയച്ചു ചില പാർട്ടികൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തതായി കമ്മീഷൻ ചൂ ിക്കാട്ടി

ഉത്തർപ്രദേശിലെ നോയിഡയിൽ വിവിധ ്രവിക്സന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചശേഷം പ്പോതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുംബൈ ഭീകരാക്രമണം ഇന്ത്യ ഒരിക്കലും മറക്കില്ലെന്നും ഗവൺമെന്റ് ഈ ആക്രമണത്തോട് ശക്തമായി പ്രതികരിക്കേ ിയിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തെ നേരിടാൻ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് ഗവൺമെന്റ് ആവിഷ്ക്കരിച്ചിട്ടുള്ളത്

ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞ ഗവൺമെന്റ് ചുട്ട മറുപടി നൽകിയിരുന്നെങ്കിൽ അത്തരം സംഘടനകൾ ഇന്ന് കാണുന്നവിധം ശക്തിപ്പെടില്ലായിരുന്നു ബാലാകോട്ട് ആക്രമണത്തെക്കുറിച്ചുള്ള തെളിവ് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ നിലപാടിനെയും പ്രധാനമന്ത്രി ശക്തമായി വിമർശിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർണാടകയിലെ മംഗ്ളൂരുവിൽ ബി ജെ പി യുടെ ശക്തികേന്ദ്ര ഭാരവാഹികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ആരെയും പ്രകോപിപ്പിക്കില്ല എന്നാൽ മറ്റുള്ളവൂരുടെ പ്രകോപനത്തെ ശക്തമായി നേരിടുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഭീകരവാദത്തെ നേരിടുന്ന കാര്യത്തിൽ ബി ജെ പി യോട് കിടപിടിക്കാൻ രാജ്യത്ത് മറ്റൊരു് ശ്ക്തിയും ഇല്ല

രാജ്നാഥ് സിംഗ് പറഞ്ഞു

വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് പുതിയ റോഡുകളുടെ നിർമ്മാണത്തിലൂടെ പ്രകടമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു

കർത്താർപൂരിലെ ഗുരുദ്വാരയിലേക്കുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ര ുനിലയുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്

ലാൻഡ് പോർട്ട്സ് അതോറിട്ടി ഓഫ് ഇന്ത്യ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റുകൾ നിർമ്മിക്കുന്നു ്

ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും അഞ്ച് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഭവനനിർമ്മാണ നഗരകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

ഭേസൻ മുതൽ സരോളി വരെയുള്ള ര ാമത്തെ ഇടനാഴിയുടെ ദൈർഘ്യം കേന്ദ്രസംസ്ഥാന ഗവൺമെന്റുകൾ പദ്ധതിയുടെ ചെലവ് തുലൃമായി പങ്കിടും

ബി

ഇതോടെ ശതമാനം ഒ ബി

ബി

ഗവർണർ ആനന്ദി ബെന്നിന്റെ ്അംഗീകാരത്തിനായി വെള്ളിയാഴ്ച ഓർഡിനൻസ് സമർപ്പിച്ചുള്പ്പെന്ന് നിയമകാര്യമന്ത്രി പി

ഐ എ നാളെ ന്യൂഡൽഹിയിൽ വിളിച്ചു വരുത്തും വിഘടനവാദി നേതാവ് സയിദ് അലി ഷാ ഗിലാനിയുടെ മകൻ നസീം ഗിലാനിയേയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടു ് ന്യൂഡൽഹിയിലെ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് ഹാജരാകാൻ ഇരുവർക്കും നിർദ്ദേശം നൽകിയിട്ടു ് ജമ്മു കാശ്മീരിലെ ചില ഭീകര സംഘടനകൾക്കും വിഘടനവാദി സംഘടനകൾക്കും ധനസഹായം നൽകിയതിന്റെ പേരിൽ എൻ ഐ എ

വിഘടന വാദികളും ഭീകരരും സുരക്ഷാ സേനയ്ക്കുനേരെ കല്ലെറിയുകയും സ്കൂളുകൾ അഗ്നിക്കിരയാക്കുകയും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത്ടിരുന്നു ഇതിനുപിന്നിൽ പാകിസ്ഥാനിലെ ജമാ അത്ത് ഉദ് ദാവുന്ന്റെതാവ് ഹഫീസ് സയിദ് ഹുറിയത് കോൺഫ്രൻസ് നേതാപ്പ് ഗ്ഗിലാനി എന്നിവരാണെന്ന് എൻ ഐ എ

പ്രസാർ ഭാരതി ചെയർമാൻ എ

ശാസ്ത്രീയ സംഗീതം നൃത്തം മറ്റ് കലാരൂപങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രസാർ ഭാരതി നല്ല പങ്ക് വഹിക്കുന്നു െന്നും അദ്ദേഹം പറഞ്ഞു

ലഗാർ വാർഡാക് ഹെൽമ ് ഉറുസ്ഗാൻ പക്തിക പ്രവിശ്യകളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബലഹീനമായ സുരക്ഷാ സാഹചരൃങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ കുറേ കാലമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു ഇതുമൂലം കഴിഞ്ഞ ര ് ദശാബ്ദമായി താലിബാൻ കാബൂളിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു

എസും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിരുന്നു

നൈജീരിയയുടെ അതിർത്തിയിലുള്ള ദ്ദീപ്പ് ഉൾനാടൻ പട്ടണത്തിലെ സൈനിക താവളത്തിന് നേരെ ഭ്രീകരർ ആക്രമണം നടത്തുകയായിരുന്നു ഭീകരരുടെ അഞ്ച് വാഹനങ്ങളും വൻതോതിലുള്ള ആയുധങ്ങളും സൈനൃം പിടിച്ചെടുത്തായും പ്രതിരോധ വൃത്തങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു

ബുധനാഴ്ച ഡൽഹിയിലാണ് അഞ്ചാം മത്സരം മെയ്മാസത്തിൽ ല നിൽ നടക്കുന്ന ലോകകപ്പ് മത്സരത്തിന്റെ മുന്നൊരുക്കമാണ് ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങൾ

ഏഷ്യൻഗെയിംസ് മെഡൽ ജേതാവ് ശിവഥാപ ലോക യൂത്ത് ചാമ്പ്യൻ സച്ചിൻ സിപ്പാച്ച് കോമൺവെൽത്ത് വെങ്കല മെഡൽ ജേതാവ് മുഹമ്മദ് ഫസ്റ്റ്റ്ട്ടീൻ കവീന്നൂർ സിങ്ങ് ബിഷ്ത് ദിനേശ് ദാഗർ ന്യ്യീൻ കുമാർ എന്നിവരാണ് സെമിയിലെത്തിയത്

ഡി

കൂടുതൽ മിഴിവോടെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ചാനലുകളുടെ സംപ്രേഷണം ചത്തീസ്ഗഢ് ഗോവ ഹരിയാന ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് ത്രിപുര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ ചാനലുകൾ ലഭ്യമാകുന്നത്